അടുത്ത മൂന്ന് ഘട്ടങ്ങളിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഊർജ്ജിതം പ്രധാനമന്ത്രി ഇന്ന് ഝാർഖണ്ഡിലും പശ്ചിമബംഗാളിലും കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽഗാന്ധി പ്രചാരണത്തിനായി ഇന്ന് രാജസ്ഥാനിൽ

തെക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ഫോനി ചുഴലിക്കാറ്റ് ഇന്ന് ഉച്ചയ്ക്ക്ശേഷം തീവ്രചുഴലിക്കാറ്റായി മാറാൻ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാനിരീക്ഷണകേന്ദ്രം സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത

പ്നേ ഓഫിന് യോഗ്യത

കൂടുതൽ വിവരങ്ങളുമായി വ്വീണ് മുകുന്ദൻ

കേന്ദ്രമന്ത്രിമാരായ ഗിരിരാജ് സിംഗ് എസ് എസ് അലുവാലിയ ബാബുൽ സുപ്രിയോ ഗജേന്ദ്രസിംഗ് ശിഖാവത് പി

ചൌധരി സുഭാഷ് ഭാംറേ സുദർശൻ ഭഗത് സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവിന്റെ ഭാര്യ ഡിംപിൾ യാദവ് ചലച്ചിത്ര താരം ഊർമ്മിള മറ്റോണ്ട്ക്കർ ബിജെപി ബീഹാർ ഘടകം തലവൻ നിത്യാനന്ദ് റോയ് ആർ

പി തലവൻ ഉപേന്ദ്ര കുശ്വാല തുടങ്ങിയ പ്രമുഖർ നാലാം ഘട്ടത്തിൽ ജനവിധി തേടുന്നു

ഭൂരിഭാഗം പോളിംഗ് ബൂത്തുകളിലും ഇത്തവണ കേന്ദ്രസേനയുടെ സാന്നിദ്ധ്യമുണ്ടാകുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയോഗിച്ച പ്രത്യേക പോലീസ് നിരീക്ഷകൻ വിവേക് ദുബെയ് പറഞ്ഞു

അനന്ത്നാഗ് പാർലമെന്റ് മണ്ഡലത്തിലെ കുൽഗാം ജില്ലയിലും കനത്ത സുരക്ഷയാണുള്ളത്

ന്യൂസ് ഡെസ്ക് ആകാശവാണി

വിവിധ കക്ഷികളിലെ പ്രമുഖ നേതാക്കൾ തിരഞ്ഞെടുപ്പ് റാലികളിൽ പങ്കെടുത്ത് അണികൾക്ക് ആവേശം പകർന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഝാർഖണ്ഡിലും പശ്ചിമബംഗാളിലും ഇന്ന് മൂന്ന് തിരഞ്ഞെടുപ്പ് റാലികളെ അഭിസംബോധന ചെയ്യും ഝാർഖണ്ഡിൽ ഗിരിധിൽ തെരഞ്ഞെടുപ്പ് യോഗത്തെ അഭിസംബോധന ചെയ്യുന്ന പ്രധാനമന്ത്രി പിന്നീട് പശ്ചിമബംഗാളിലെ ശ്രീരാംപൂർ ബരാക്പൂർ എന്നിവിടങ്ങളിലെ റാലിയെ അഭിസംബോധന ചെയ്യും

ജെ പി ദേശീയ അദ്ധ്യക്ഷൻ അമിത് ഷാ ഇന്ന് ഉത്തർപ്രദേശിലെ ചിത്രകൂട് പ്രതാപ്ഗർ ജോൺപൂർ പ്രയാഗ്രാജ് എന്നിവിടങ്ങളിൽ തിരഞ്ഞെടുപ്പ് പരിപാടികളിൽ പങ്കെടുക്കും കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽഗാന്ധി രാജസ്ഥാനിലെ ദാൽപൂർ ചുരൂ ജയ്പൂർ എന്നിവിടങ്ങളിൽ ഇന്ന് പ്രചാരണം നടത്തും

ഡിജിറ്റൾ തെളിവുകൾ ശേഖരിച്ചതായും സംഭവ ത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്റലിജൻസ് സ്റ്റ്വിധാനം കൂടുതൽ മെച്ച പ്പെടുത്തിയതായും ശ്രീനഗർ ജില്ലാ പ്പേര്ലീസ് സൂപ്രണ്ട് ഹസീദ് മുഗൾ അറിയിച്ചു കൂടുതൽപേരെ ചോദ്യൂം ചെയ്തു വരികയാണെന്നും അദ്ദേഹം പറഞ്ഞു

ആക്രണമത്തിൽ പരിക്കേറ്റ് പോലീസുകാരൻ ശ്രീനഗറിൽ ചികിത്സയിലാണ്

ഇന്നലെ ന്യൂഡൽഹിയിൽ ദിവ്യാംഗർ അവതരിപ്പിച്ച കലാപരിപാടികൾ ആസ്വദിക്കുന്നതിനിടെയാണ് ഉപരാഷ്ട്രപതി ഇക്കാര്യം പറഞ്ഞത് വിവേചനങ്ങൾ പൂർണ്ണമായി ഇല്ലാതാക്കിയാൽ മാത്രമേ ദിവ്യാംഗരെ ശാക്തീകരിക്കാൻ കഴിയുകയുള്ളൂവെന്നും അദ്ദേഹം പറഞ്ഞു

ഇന്ത്യയെ പ്രതിനിധീകരിച്ച് രാജ്യരക്ഷാമന്ത്രി നിർമ്മലാസീതാരാമൻ പങ്കെടുക്കും ശ്രീമതി നിർമ്മല സീതാരാമൻ ഇന്നലെ കിർഗിസ്ഥനിൽ എത്തി മൂന്നു ദിവസത്തെ ഉച്ചകോടിക്കിടെ അംഗരാജ്യങ്ങുടെ പ്രതിനിധികളുമായി ഉഭയകക്ഷി ചർച്ച നടത്തും

ഭീകരവാദം ചെറുക്കുന്നതിന് മേഖലാതലത്തിലുള്ള സ്ഹകരണം കൂടുതൽ ആഴത്തിലാക്കാനുള്ള ചർച്ചകൾക്ക് ഇ്ന്ത്യ മുൻകൈയ്യെടുക്കും

കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് വിശദാംശങ്ങളുമായി വീണാമുകുന്ദൻ

ഫോനി ചുഴലിക്കാറ്റിന്റെ സ്വാധീനത്തിൽ കേരളത്തിൽ ഇന്നും നാളെയും ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയുണ്ടെന്നും മൂന്നറിയിപ്പുണ്ട് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ കനത്ത മഴയുണ്ടാകും തമിഴ്നാട് ആന്ധാ തീരങ്ങളിൽ ഇന്നുമൂത്യൽ രണ്ട് ദിവസത്തേക്ക് മഴയുണ്ടാകാൻ സാധ്യതയുണ്ട്

പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് എറണാകുളം ഇടുക്കി തൃശൂർ ജില്ലകളിൽ ഇന്നും നാളെയും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് രണ്ട് ദിവസത്തേക്ക് തമിഴ്നാട് ആന്ധാ കേരള തീരത്തുള്ള മൽസ്യത്തൊഴിലാളികളോട് കടലിൽ പോകരുതെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്

സൌരാഷ്ട്ര കച്ച് മേഖലയിലാണ് കൂടുതൽ ചൂട്

മഹാരാഷ്ട്രയിൽ മറാത്ത്വാഡ മേഖലയിൽ ചൂടിനെ കരുതിയിരിക്കണമെന്ന് കാലാവസ്ഥാ നിരീക്ഷണകേന്ദ്രം മുന്നറിയിപ്പ് നൽകി

കനത്ത മഞ്ഞ് വീഴ്ചയെ തുടർന്ന് കഴിഞ്ഞ ഡിസംബറിലാണ് കാശ്മീർ താഴ്വരയിൽ ലഡാക്കുമായി ബന്ധിപ്പിക്കുന്ന ദേശീയപാത അടച്ചിട്ടത് സോജിലായിൽ നടന്ന ചടങ്ങിൽ ലഫ്റ്റനന്റ് ജനറൽ ജെ

ധില്ലൻ രാവിലെ ദേശീയപാത ഗതാഗതത്തിന് തുറന്നു കൊടുത്തു

ഒൻപത് പേരെ കാണാനില്ല

ബങ്കുല പ്രവിശ്യയിൽ നിരവധി കെട്ടിടങ്ങൾ തകരുകയും പാലങ്ങൾക്ക് കേടുപാടുകൾ ഉണ്ടാകുകയും ചെയ്തു

സുരക്ഷാനടപടികളുടെ ഭാഗമായാണ് തീരുമാനമെന്ന് ശ്രീലങ്കൻ പ്രസിഡന്റ് മൈത്രി പാല സിരിസേന വൃക്തമാക്കി ഇന്ന് മുതൽ നിരോധനം പ്രാബല്യത്തിൽ വരും ദേശസുരക്ഷ പരിഗണിച്ച് മുഖം മറയ്ക്കൽ ഒഴിവാക്കണമെന്നും ആളുകളെ തിരിച്ചറിയാനുള്ള സാധൃത സുരക്ഷാനടപടികളുടെ ഭാഗമാണെന്നും സിരിസേന അറിയിച്ചു സ്ത്രീകൾ മുഖം മറയ്ക്കേണ്ടതില്ലെന്ന് കഴിഞ്ഞ ദിവസം പ്രാദേശിക മതനേതാക്കൾ നിർദ്ദേശിച്ചിരുന്നു

പുരുഷൻമാരുടെ ഫ്രീ സ്റ്റൈൽ വിഭാഗത്തിൽ ഒരു സ്വർവും മൂന്ന് വെള്ളിയും നാല് വെങ്കലവുമടക്കം എട്ട് മെഡലുകളാണ് ഇന്ത്യൻ താരങ്ങൾ നേടിയത്